ഹോളിഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ ഫ്രാൻസിസ് മാർപാപ്പ അൽപ സമയത്തിനകം വിശു ദ്ധയായി പ്രഖ്യാപിക്കും

മറിയം ത്രേസ്യയ ടക്കം അഞ്ചുപേരെയാണ് ഇന്ന് വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത് മറിയം ത്രേസ്യയുടെ തിരുശേഷിപ്പുകൾ പ്രത്യേകം തയ്യാറാക്കിയ അരുളിക്കയി ലാക്കി അൾത്താരയിൽ പ്രതിഷ്ഠിച്ച ശേഷമായിരിക്കും വാഴ്ത്തപ്പെട്ടവരെ വിശുദ്ധരാക്കുക ചടങ്ങിൽ മലയാളത്തിലും പ്രാർത്ഥനയും ഗാനാർച്ചനയും ഉണ്ടാകും മറിയം ത്രേസ്യയുടെ മാതൃരൂപതയിലെ ഇരിങ്ങാലക്കൂടി മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ ചടങ്ങിൽ സഹകാർമികനാകും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സംഘം ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വത്തിക്കാനിലെത്തി

പ്രതാപൻ

യും ചടങ്ങി നെത്തിയിട്ടുണ്ട് തൃശ്ശൂർ കുഴിക്കാട്ട്ശ്ശേരിയിലെ മറിയം ത്രേസ്യ തീർത്ഥാടന കേന്ദ്രത്തിലും ജന്മനാടായ പുത്തൻചിറയിലും പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി

വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന നാലാമത്തെ മലയാളിയാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പൊതുമേഖല ബാങ്ക് മേധാവുക ളുമായി നാളെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും വായ്പകൾ അനു വദിക്കുന്നത് ഉൾപ്പെടെ വിഷയങ്ങൾ അവലോകനയോഗത്തിൽ മേധാവി കളുമായി അവർ ചർച്ചചെയ്യും സൂക്ഷ്മ ചെറുകിട മീഡിയം സ്ഥാപന ങ്ങൾക്ക് ഫണ്ട് ലഭ്യമാക്കുന്ന കാര്യവും ചർച്ചാവിഷയമാവും

മൂലധന അടി ത്തറ വർദ്ധിപ്പിക്കുന്നതിന് വിപണിയിൽനിന്ന് പണം സമാഹരിക്കുന്നതിലെ പുരോഗതിയും ബാങ്കുമേധാവികൾ യോഗത്തിൽ അറിയിക്കും

ഒരു മാസത്തിനിടെ രണ്ടാംതവണയാണ് ധനമന്ത്രി പൊതുമേഖലാ ബാങ്കുകളുടെ തലവൻമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഭൂരിപക്ഷവും കഴിഞ്ഞ മൂന്നര വർഷത്തിനുള്ളിൽ നടപ്പാക്കാനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജ യൻ പറഞ്ഞു ഗെയ്ൽ പൈപ്പ് ലൈൻ പദ്ധതി ദേശീയപാതാ വികസ നം പുതുതായി കമ്മീഷൻ ചെയ്ത വൈദ്യുത ലൈൻ എന്നിവ ഇതിന് ഉദാഹരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഒന്നും നടക്കില്ലെന്ന അവസ്ഥയ്ക്ക് മാറ്റംവന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്ത്തന്നെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേതുടർന്ന് ഒട്ടേറെ പൊതു നിക്ഷേപങ്ങൾ രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ലഭിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു

മരടിലെ ഫ്ളാറ്റ് പൊളിക്കൽ കരാറിന് അംഗീകാരം നൽകാൻ നഗര സഭാ കൌൺസിൽ വീണ്ടും യോഗം ചേരുമെന്ന് അധ്യക്ഷ ടി

ഇന്നലെ ചേർന്ന യോഗത്തിൽ വിഷയം അജണ്ടയിൽ ഇല്ലാ തിരുന്നതിനാലാണ് ചർച്ച ചെയ്യാതിരുന്നതെന്നും അവർ കൊച്ചിയിൽ പറ ഞ്ഞു ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കാൻ രണ്ടു കമ്പനികളെ തെരഞ്ഞെടുത്തി ട്ടുണ്ടെങ്കിലും നഗരസഭാ കൌൺസിൽ തീരുമാനം അംഗീകരിച്ചിരുന്നില്ല പൊളിപ്പിക്കലുമായി ബന്ധപ്പെട്ട് മറ്റുകാര്യങ്ങളൊന്നും കൌൺസിലുമായി ആലോചിക്കാതെ നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് ഇത് നഗരസഭാ കൌൺസിൽ അംഗ്വീകാർം വാങ്ങിയശേഷമാവും ഇനി തുടർനടപടികൾ സ്വീകരിക്കുക മരടിലെ അനധികൃത ഫ്ളാറ്റുകൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിസരവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ ഇന്നും നാളെയും നാലിട ങ്ങളിൽ സബ് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേരും ഫ്ളാറ്റുകൾ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ പൊളിക്കാൻ പത്ത് മുതൽ പതിനഞ്ച് സെക്കന്റ് വരെ സമയമാണ് വേണ്ടിവരികയെന്ന് അദ്ദേഹം മരട് നഗരസഭാ യോഗത്തെ അറിയിച്ചു ഡിസംബർ അവസാ നമോ ജനുവരി ആദ്യമോ ഫ്ളാറ്റുകൾ പൊളിക്കാനാണ് തീരുമാനം

പ്രായപൂർത്തിയാകാത്ത ഒരാളും ഇതിൽപെടുന്നു

കൂട്ടിക ളുടെ നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്താൻ സംസ്ഥാന വൃാപകമായി മൂന്നാംതവണയാണ് റെയ്ഡ് നടക്കുന്നത്

ഇവയിൽ സജീവമായ ഗ്രൂപ്പുകളും അതിലെ അംഗങ്ങളും പൊലീസിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കണ്ണൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലായിരുന്നു റെയ്ഡ്

കൂടത്തായ് ദുരൂഹമരണ കേസിൽ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുകയാണ് കൂടാതെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിൽ നിന്നും മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട് കേസ് അന്വേഷണ ഘട്ടത്തിൽ ജോളിയുടെ പല നടപടികളും സംശയമുയർത്തിയിട്ടുണ്ടെന്ന് അന്വേഷണ തലവൻ കെ ജി സൈമൺ ഒരു വാർത്താ മാധ്യമത്തോട് പറഞ്ഞു കല്ലറ തുറയ്ക്കുന്ന സ്ഥലത്ത് വരാൻ ആവശ്യപ്പെട്ടിട്ടും ജോളി വരാതിരുന്നതും നുണ പരിശോധനയ്ക്ക് ആവശ്യപ്പെട്ടപ്പോൾ നിരസിച്ചതും ഇതിനുതെളി വാണെന്ന് അദ്ദേഹം പറഞ്ഞു കുടുംബ സ്വത്ത് തർക്കം ഒത്ത് തീർപ്പാക്കാൻ റോയ് തോമസിന്റെ സംബന്ധിച്ച പരാതി പിൻവലിക്കാൻ മരണം ജോളി ആവശ്യപ്പെട്ടിരുന്നതായും എസ് പി പറഞ്ഞു ജോളിയുടെ ജോലി സംബന്ധിച്ച് എൻ ഐ ടി അധികൃതരോട് വിശദീകരണം ചോദിക്കുകയും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മരണസമയത്തെ സ്ഥിരം സാന്നിധ്യം സംബന്ധിച്ചും ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ കാലതാമസം നേരിട്ടത് സംബന്ധിച്ചും പരിശോധിച്ചിരുന്നതായും എസ്

സാമ്പത്തിക കാര്യവും വസ്തുവിഷയവുമൊക്കെ ഈ കേസിന് പിന്നിലുണ്ടെന്നും സൈമൺ പറഞ്ഞു ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളിൽ ഉൽപ്പന്നങ്ങൾ പാക്കു ചെയ്യുന്നത് കുറച്ചുകൊണ്ടുവരണമെന്ന് കേന്ദ്ര വാണിജ്യവ്യവസായ മന്ത്രാ ലയം ഇ കൊമേഴ്സ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകി പ്ലാസ്റ്റിക്കുകൾ ആഗോളതലത്തിൽ കുറയ്ക്കുന്നതിനായി പകരം പാക്കേജിംഗ് വസ്തു വികസിപ്പിച്ചെടുക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് തെക്കുപടിഞ്ഞാറൻ കാലവർഷം വൃാഴാഴ്ചയോടെ പൂർണ്ണമായി പിൻവാങ്ങുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

അതിനിടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും കനത്ത മഴ ലഭിക്കുന്നുണ്ട് ശക്തമായ മഴയുടെ സാധ്യത കണക്കിലെടുത്ത് വയനാട് ഇടുക്കി ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക തകരുന്നു

സംസ്ഥാന സി

എസ് ഇ സ്കൂൾ ബാസ്ക്കറ്റ് ബോൾ ടൂർണ്ണമെന്റ് ബുധനാഴ്ച കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് നടക്കും

നെതർലാന്റ് രാജ്ഞി മാക്സിമയും രാജാവ് വില്ലം അലക്സാണ്ടറും രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിനായി വ്യാഴാഴ്ച കൊച്ചിയിലെ ത്തും റി ബിൽഡ് കേരളയിൽ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തു ന്നതിനും സംസ്ഥാനത്തെ തുറമുഖങ്ങളുടെ വികസനത്തിനുമാണ് രാജാവും രാജ്ഞിയും കേരളം സന്ദർശിക്കുന്നതെന്ന് ഔദ്യോഗിക കേന്ദ്ര ങ്ങൾ തിരുവനന്തപുരത്ത് അറിയിച്ചു പ്രൊഫഷനലുകളും ഡച്ചുകമ്പനി കളിലെ സി

വെള്ളിയാഴ്ച ആലപ്പുഴയിലും സംഘം സന്ദർശനം നടത്തും കൊല്ലത്ത് വൃദ്ധയായ അമ്മയെ കൊന്നു വീട്ടുവളപ്പിൽ കുഴിച്ചു മൂടിയ മകനെ പൊലീസ് അറസ്റ്റുചെയ്തു

മകനും സുഹൃത്തിനെ കൊന്നകേസിൽ പ്രതിയുമായ സുനിലാണ് അറസ്റ്റിലായത് അമ്മയെ കാണാനില്ലെന്ന മകളുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊന്ന് മറവ് ചെയ്തതാണെന്ന് കണ്ടെത്തിയത് ഒളിവിൽപോയ കൂട്ട് പ്രതിയെന്ന് സംശയിക്കുന്ന കുട്ടനുവേണ്ടി പൊലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി

രാജ്യങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ സമുദ്രശക്തിയുടെ പങ്ക് എന്നതാണ് ഈ വർഷത്തെ വിഷയം

ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ സെമിനാർ പൊതുസമ്മേളനം വൈറ്റ് കെയിൻ റാലി എന്നിവ നടത്തും കോർപറേഷൻ മേയർ സുമാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ കണ്ണൂരിൽ അറിയിച്ചു